ക്രാന്തികാരി മോർച്ച പ്രസിഡന്റ് പ്രപ്രം സിംഗ് ഗോലെ ഇന്ന് സിക്കിം മുഖ്യമന്ത്രിയായി സ്ക്യൂപ്പ്തിജ്ഞ ചെയ്യും

ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ ഇന്ന് ചോദൃം ചെയ്യലിന് ന് ഹാജരാകണമെന്ന് കൊൽക്കത്ത മുൻ പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിന് സി ബി

അഞ്ജലിക് കെർബറും വീനസ് വിലൃംസും ആദ്യ റൌണ്ടിൽ പുറത്തായി

ജെ പി അധ്യക്ഷൻ അമിത്ഷാ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് പോലീസ് ലൈൻ മുതൽ കാശിവിശ്വനാഥ ക്ഷേത്രം വരെയുള്ള റോഡ്ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ട്രേഡ് ഫെസിലിറ്റേഷൻ സെന്ററിൽ ബി ജെ പി പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും

മോദി വാരാണസി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്

നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം എൻ ഡി എ ഗവൺമെന്റ് വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് ചടങ്ങ് കൂടുതൽ വിവരങ്ങളുമായി സുപ്രഭ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ശ്രീ

സത്യഫ്രിജ്ഞാ ചടങ്ങിൽ വിവിധ ലോക നേതാക്കൾ പങ്കെട്ടുക്കുമെന്നാണ് റിപ്പോർട്ട്

നരേന്ദ്രമോദി ആദ്യമാ്യി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ സാർക് രാജ്യങ്ങളുടെ തലവന്മാരാണ് അതിഥികളായി എത്തിയത് ഇന്നലെ അഹമ്മദാബാദ് സന്ദർശിച്ച പ്രധാനമന്ത്രി റാലിയെ അഭിസംബോധന ചെയ്തു ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചു പിടിക്കാനുള്ളതായിരുക്കും ഇനിയുള്ള അഞ്ച് വർഷമെന്ന് ശ്രീ

എല്ലാവരുടെയും സഹകരണത്തോടെ ഇന്ത്യ പുരോഗതിയിലേക്ക് നീങ്ങും തനിക്ക് ലഭിച്ച ജനവിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അതിന് മുന്നിൽ തലകുനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഓരോ വീട്ടിലും എത്തിച്ചേരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ ബി

പിക്കായെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ മുന്നോടിയായി ഗാന്ധിനഗറിലെത്തിയ ശ്രീ മോദി അമ്മ ഹീരാ ബെന്നിനെ കണ്ട് അനുഗ്രഹം വാങ്ങി

ആന്ധ്രപ്രദേശിലെ ജനതയോട് മഹാമനസ്കത കാണിക്കണമെണ്ണ് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായി അദ്ദേഹം മാധ്യമങ്ങളോട്ട് പ്റഞ്ഞു

ഗാങ്ടോക്കിലെ പൾസോർ സ്റ്റേഡിയത്തിൽ ഗവർണ്ണർ ഗംഗാപ്രസാദ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും

ഗോലെയെ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിനായി ക്ഷണിച്ചത്

ജെ

പുത്ചിയ് മീവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും

പുതിയ ഗവൺമെന്റ് അധികാരമേൽക്കുന്നതുവരെ സ്ഥാനത്ത് തുടരാൻ ഗവർണർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു

ജെ

നിലവിലെ ഒമ്പതാമത് നിയസഭയുടെ കാലാവധി അടുത്തമാസം ഒന്നുവരെയാണ്

ബി

ഐ ഡി അഡീഷണൽ ഡയറക്ടറായി രാജീവ്കുമാറിനെ നിയമിച്ച ബംഗാൾ ഗവൺമെന്റ് നടപടികൾക്കു തൊട്ടു പിറകെയാണ് സി ബി

രാജീവ്കുമാറുമായി ഫോണിലൂടെ ബന്ധപ്പെടാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് അംഗ സി ബി

ബി

രാജിവ്കുമാറിനെതിരെ ലൂക്ക്ഔട്ട്ട്ന്റെട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതായും സി ബി ഐ വൃത്തങ്ങൾ അറിയിച്ചു

ജൂലൈ വരെ സഭ ചേരുന്നുണ്ട്

സ്വാശ്രയ കോളേജ് ഫീസ് നിർണയ ബിൽ നാളെ അവതരിപ്പിക്കും ബജറ്റ് ചർച്ച മറ്റന്നാൾ ആരംഭിക്കും റമദാനായതിനാൽ വ്യാഴാഴ്ച മുതൽ അടുത്തമാസം ഒമ്പതുവരെ സഭ ചേരില്ല

ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നശേഷമുള്ള ആദ്യ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയികളായ എം

എ മാരായ എ

ആരിഫ് കെ

വരും ദിവസങ്ങളിൽ കാലവർഷാരംഭത്തിനുള്ള അനുകൂല ഘടകങ്ങൾ പ്രതീക്ഷിക്കുന്നതായും അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ അഞ്ച് ദിവസം വൈകി അടുത്ത മാസം ആറോടെ കാലവർഷം ആരംഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

കൂടുതൽ പേർക്കായി തിരച്ചിൽ തുടരുകയാണ്ട്

നിലവിലെ വിംബിൾഡൺ ജേതാവും അഞ്ചാം സീഡുമായ അഞ്ജലിക് കെർബറും വീനസ് വില്യംസും ആദ്യ റൌണ്ടിൽ പുറത്തായി

ഏഴ് തവണ ഗ്രാന്റ്സ്താം കിരീടം നേടിയ വീനസ് വില്യംസിനെ ഒമ്പതാം സീഡ്കാരിയായ ഉക്രെയിൻ താരം എലിന സ്ഥിറ്റോലിനയാണ് പരാജയപ്പെടുത്തിയത് ഫ്രഞ്ച് ഓപ്പണിൽ ്ഷിങ്കെടുക്കുന്ന ഇന്ത്യൻതാരമായ പ്രജേഷ് ഗുണേശ്പരിൻ ആദ്യ റൌണ്ടിൽതന്നെ ബൊളീവിയയുടെ മാർക്കോ ഡ്പ്ലീഗ്ഗോട് പരാജയപ്പെട്ട് പുറത്തായി

രണ്ടാം അലോട്ട്മെന്റ് പിന്നീട് പ്രസിദ്ധീകരിക്കും

പട്നയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട കേരള ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നു തിരഞ്ഞെടുക്കും

മാർച്ച് പത്തിന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുമുതിലാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്

പാലത്തിന്റെ ഇരുവശത്തുമുള്ള കോൺക്രീറ്റ് ഭിത്തികളും ഉടനെ പൊളിച്ചുമാറ്റും

ഇതിനുള്ള സാമഗ്രികളെല്ലാം എത്തി ജങ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് ഗതാഗതനിയന്ത്രണം ഏർപ്പെടുത്തി പെരുന്നാൾ തിരക്കായതിനാൽ ദീർഘദൂര ബസുകൾ ജങ്ഷൻ വഴി തന്നെ കടത്തിവിടാമെന്ന ധാരണയായി

കഴിഞ്ഞ ആഴ്ച മത്യീല്ലക്കത്ത് പനി ബാധിച്ച് മരിച്ച യുവാവ് എച്ച് വൺ എൻ വൺ ബാധ്ചിത്തായിരുന്നു എന്ന് സ്ഥിരീകരിച്ചതായി ആരോഗ്യവുകുപ്പ് അറിയിച്ചു ആരോഗ്യ വിഭാഗം ജാഗ്രതാ നിർദേശം നൽകി